ഉദ്ഘാടന ദിവസം ഓരോ കേന്ദ്രത്തിലും നൂറോളം പേർക്ക് വാക്സിനേഷൻ

തിരി തെളിയും

ഓരോ കേന്ദ്രത്തിലും നൂറോളം പേർക്കാണ് ആദ്യദിനം കുത്തിവയ്പ്പ് നല്കുക

കോവിഷീൽഡ് കോവാക്സിൻ എന്നീ രണ്ടു വാക്സിനുകളാണ് കോവിഡിനെ പ്രതിരോധിക്കാനായി ഇന്ത്യയിൽ വിതരണാനുമതി നല്കയിട്ടുള്ളത്

ജില്ലാതലത്തിലും ബ്ലോക്കു തലത്തിലും കുത്തിവയ്പ്പിന്റുള്ള് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ആരോഗൃമന്ത്രി ക്ട്

ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ഇതുസംബന്ധിച്ച ധാരണായി

ഇന്നലെയാണ് രണ്ടു ദിവസത്തെ അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് തുടക്കമായത്

പ്ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റാർട്ടപ്പുകളുടെ അർമുഭ്വങ്ങൾ പങ്കുവയ്ക്കാൻ ഉച്ചകോടി സഹായകരമാകു്മെന്ന് അദ്ദേഹം പറഞ്ഞു വാണിജ്യവ്യവസായ മന്ത്ര്യ്ല്യത്തിനു കീഴിലുള്ള വ്യവസായ പ്രോത്സാഹന വകുപ്പാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്

തൊഴിൽ നൈപുണ്യ സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ ആധുനിക കാലത്തും കോവിഡ് കാലയളവിലും വേണ്ട തൊഴിൽ നിപുണത ഗുണഭോക്താക്കൾക്ക് നൽകുകയാണ് ലക്ഷ്യമിടുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡേ വിവിധ നൈപുണ്യ വികസന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു

ഏപ്രിൽ എട്ടുവരെയാണ് സമ്മേളനം ഇക്കുറു് ്അഞ്ച് മണിക്കൂർ സഭ സമ്മേളിക്കും ചോദ്യോത്തര ക്പേളയും ഉണ്ടാകും മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും ക്യൂന്ദർശകർക്കും വിലക്കുണ്ട്

എട്ട് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്ളാഗ് ഓഫ് ചെയ്യും

ഗുജറാത്തിലെ റെയിൽവേ മേഖലയിലെ മറ്റ് വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയൽ മുഖ്യമന്ത്രി വിജയ് തുടങ്ങിയവരും രൂപാണി സന്നിഹിതരായിരിക്കും

മൃഗ രോഗത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനും ഇതു സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി

രാജ്യത്ത് നിയന്ത്രണവിധേയമാണെന്നും മന്ത്രാലയം അറിയിച്ചു

കേദാർനാഥ് ഷുഗർ ആന്റ് അഗ്രോ പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ എഥനോൾ പദ്ധതിയും കെ എൽ ഇ ആശുപത്രിയിലെ വിപുലമായ സിമുലേഷൻ സെന്ററും ഉദ്ഘാടനം ചെയ്തതിനു ശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക

നേപ്പാൾ വിദ്ദേശകാര്യ മന്ത്രി പ്രദീപ് കുമാർ ഗ്യാവാലിയും വിദേശകാര്യമുന്തി ് എസ്

ഇന്ത്യ നേപ്പാൾ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ചാ വിഷയമായി

ടോക്കിയോ ഒളിമ്പിക്സിനു യോഗ്യത നേടിയ ഇന്ത്യൻ അത്ലറ്റ് അവിനാഷ് സാമ്പിളിന്റെ പരിശീലനച്ചുമതലയാണ് അദ്ദേഹത്തതിനു നല്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര യുവജനകായിക മന്ത്രാലയം അറിയിച്ചു സ്നസരേവിന്റെ പരിശീലനപാടവങ്ങൾ ഇന്ത്യയുടെ മറ്റു മധ്യ ദീർഘദൂര അത്ലറ്റുകളുടെ പ്രകടനത്തെ കൂടി മികവുറ്റതാക്കുമെന്ന് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അദില്ല സുമാരിവാല അഭിപ്രായപ്പെട്ടു

രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നില്ലെത്തിയിരുന്നെങ്കിലും മത്സരം അവസാനിക്കാൻ ഒരു മിനിറ്റ് ഗ്ഗേഷിക്കെ ഈസ്റ്റ് ബംഗാൾ സമനില ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിറ്റ്ന്റെ മലയാളി താരം സഹൽ അബ്ദുൾ സമദ് മത്സരത്തിലെ ഷ്റീറോ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കി